സ്വാമി വിവേകാനന്ദന്റെ ദർശനം ഉൾക്കൊണ്ട് പുതിയ ഇന്ത്യയ്ക്കായി പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ആധാർ സോഫ്റ്റ്വെയറിലെ വിവരങ്ങൾ ചോരുന്നു എന്ന റിപ്പോർട്ട് അടിസ്ഥാനരഹിതമെന്ന് സവിശേഷ തിരിച്ചറിയൽ അതോറിറ്റി

വൈദ്യുതി നിരക്കിൽ ഹരിയാന ഗവൺമെന്റ് ഗണ്യമായ ഇളവ് ന് പ്രഖ്യാപിച്ചു

പ്രളയദൂരിതാശ്വാസ ധനസമാഹരണയജ്ഞം സജീവം

ഏക് ഭാരത് ശ്രേഷ്ഠ് ഭാരത് എന്നതാണ് സ്വാമി വിവേകാനന്ദന്റെ ചരിത്രപ്രസിദ്ധമായ ചിക്കാഗോ പ്രസംഗത്തിന്റെ അന്തഃസത്ത

രാഷ്ട്ര നിർമ്മാണത്തിൽ യുവാക്കളുടെ സംഭാവനകളിൽ താൻ സന്തുഷ്ടനാണെന്ന് ശ്രീ മോദി പറഞ്ഞു

സ്ഥാപിത താൽപ്പര്യക്കാരാണ് വ്യാജ റ്റിപ്പോർട്ടുകൾ പ്രചരിപ്പിക്കുന്നതെന്ന് അതോറിറ്റി വാർത്താക്കുറിപ്പിൽ് അറിയിച്ചു ഒന്നിലധികം ആധാർ കാർഡുകൾ തയ്യാറാക്കാൻ രേഖകൾ ഉപയോഗപ്പെടുത്തുന്നുവെന്ന അവകാശവാദം തികച്ചും വസ്തുതാവിരുദ്ധമാണ് ആധാർ രേഖകൾ എല്ലാ രീതിയിലും സുരക്ഷിതമാണെന്നും അതോറിറ്റി അറിയിച്ചു ഗുണഭോക്താവിനല്ലാതെ മറ്റാർക്കും ആധാർ വിവരങ്ങൾ പുതുക്കാൻ കഴിയില്ലെന്നും അതോറിറ്റി വൃക്തമാക്കി

മുഖ്യമന്ത്രി മനോഹർ ഖട്ടാർ നിയമസഭയിലാണ് ഇക്കാര്യം അറിയിച്ച തച്ചത്

തായ്ലാന്റ് അമേരിക്ക ബെൽജിയം യു

ഇ ഇറ്റലി ജപ്പാൻ ഹോങ്കോങ്ങ് എന്നിവിടങ്ങളിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്

എൻ ബി യുടെ മുംബൈയിലെ ബ്രാഡിഹൌസ് ശാഖയിൽ നിന്നാണ് വായ്പ എടുത്തത് വ്യാജ രേഖകളിലൂടെയാണ് വായ്പ കരസ്ഥമാക്കിയതെന്ന് എൻഫോഴ്സ്മെന്റ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ പറയുന്നു

ജൂലൈയിൽ നടന്ന വിച്ചാരണ് വേളയിലാണ് മല്യയെ പാർപ്പിക്കാനുള്ള ജയിലില്ലെ സൌകര്യങ്ങളെപ്പറ്റി വെസ്റ്റ് മിനിസ്റ്റർ മജിസ്ട്രേറ്റ് കോടതി ഇന്ത്യൻ അധികൃതരോട് വിവരങ്ങൾ ആരാഞ്ഞത്

കാൺപൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കേന്ദ്രം പുതിയ നിയമം കൊണ്ടു വരുമെന്നും ശ്രീ

ഛത്രപതി ഷാഹുജി മഹാരാജാ ഹ സർവകലാശാലയിൽ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനാണ് മന്ത്രിട് കാൺപൂരിൽ എത്തിയത് അറിവ് നേടുന്നതിനൊപ്പം സാമൂഹിക മൂല്യങ്ങൾ കൂടി കുട്ടികൾ സ്വായത്തമാക്കണമെന്ന് ് മന്ത്രി പറഞ്ഞു

എ ഗവൺമെന്റ് അഞ്ച് വർഷം കാലാവധി തികയ്ക്കുന്നതോടെ രാജ്യത്ത് അഞ്ചു ലക്ഷം കിലോമീറ്റർ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി

ഉത്തർ പ്രദേശിലെ ബാഗ്പട്ട് ജില്ലയിൽ ഡൽഹി സഹറൻപൂർ ദേശീയ പാതയുടെ നിർമ്മാണോദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം മുൻ യു പി ഗവൺമെന്റ് റോഡ് നിർമ്മാണത്തിന് അനുമതി നൽകിയില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു

ബാഗ്പട്ട് സഹറൻപൂർ ഷാംലി മുസഫർ നഗർ എന്നിവിടങ്ങളുടെ വികസനത്തിന് പാത വഴിയൊരുക്കും

പടിഞ്ഞാറൻ അരുണാചൽ ഗാസിയാബാദ് ഹസ്സാരിബാഗ് ജയ്പ്പൂർ നവാഡ എന്നീ പാർലമെന്റ് മണ്ഡലങ്ങളിലെ ബിജെപി പ്രവർത്തകരുമായാണ് പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുന്നത്

ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ജസ്റ്റിസുമാരായ എ

ഖാൻവിൽക്കർ ഡി

റെയിൽവേയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സംഭാവനകൾ നൽകാൻ കോർപറേറ്റ് കമ്പനികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പോർട്ടൽ വഴി അവസരം ലഭിക്കും റെയിൽവേയുടെ വികസന പദ്ധതികൾക്ക് വേഗവും കാലത്തിനനുസരിച്ച് മാറ്റവും വന്നതിന് ഉദാഹരണമാണ് വെബ് പോർട്ടലെന്ന് പീയുഷ് ഗോയൽ പറഞ്ഞു

ബാക്കിയുളളവർക്ക് ഇന്ന് ലഭ്യമാക്കും കിറ്റ് വിതരണം പൂർത്തിയായി

ലോക ബാങ്ക് എ ഡി ബി

കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

നീണ്ട ഇടവേളയ്ക്കു ശേഷം സെഞ്ചറി നേടിയ ഓപ്പണർ ലോകേഷ് രാഹുലിന്റെയും കന്നി ടെസ്റ്റ് സെഞ്ചറി നേടിയ യുവതാരം റിഷഭ് പന്തിന്റെയും അതുല്യ പ്രകടനത്തിനു ശേഷമാണ് ഓവലിൽ ഇന്ത്യ പരാജയം സമ്മതിച്ചത്

എന്നാൽ ഇംഗ്ലണ്ടിന്റെ കൃത്യതയാർന്ന ബൌളിങ്ങിന് മുന്നിൽ ഇന്ത്യൻ താരങ്ങൾക്ക് പിടിച്ച് നിൽക്കാനായില്ല